അഭിസംബോധന ചെയ്യും

ചെയ്യുന്നതിൽ രാജ്യത്തെ നദ്ദ്സ്ുമാർ നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി

കേന്ദ്ര ആരോഗൃ മന്ത്രാലയം കേരളത്തിൽ ഇന്ന് അഞ്ച് പേർക്ക് കൂടി കോവിഡ്

ടിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാരൃം അറിയിച്ചത്

സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഇത് നാലാം തവണയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്

ലോക നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇ്ക്കാർൃം വൃക്തമാക്കിയത് രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന് ന്ഴ്സുമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ഫ്ളോറൻസ് നൈറ്റിംഗേളിന്റെ പാത പിന്തുടർന്ന് കഠിനാദ്ധാനം ചെയ്യുന്ന നഴ്സുമാർ നുകമ്പയുടെ മൂർത്തീഭാവമാണ് നഴ്സുമാരുടെ ക്ഷേമം ഉൾപ്പാക്കാൻ പ്രതിബദ്ധരാണെന്നും അവർക്ക് ഒരു കുറവും ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്

യാത്രക്കാരെ വിവിധയിടങ്ങളിലേക്ക് കൊണ്ടു പോകുന്നതിനുള്ള വാഹനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്

എസ് ജലാശ്വ മാലിദ്വീപിൽ നിന്ന് രണ്ടാം രക്ഷാദൌത്യത്തിന് ഒരുങ്ങുന്നു കൂടുതൽ വിവരങ്ങളുമാിയിക്ൃഷ്ണ

എസ് ജലാശ്വയുടെ രണ്ടാം ദൌത്യത്തിൽ വെള്ളിയാഴ്ച കൊച്ചിയിൽ എത്തിക്കുന്നത്

ഇത്തവണ തമിഴ്നാട് സ്വദേശികളെ കൂടി കന്യാകുമാരിയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുണെങ്കിലും തമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു ഇതിന് പുറമെ കേരളത്തിലേക്കും ചെന്നൈ ന്യൂഡൽഹി ബംഗളൂരു മുംബൈ എന്നീ നഗരങ്ങളിലേക്കും മാലദ്വീപിൽ നിന്ന് എയർ ഇന്ത്യ വിമാന സർവ്വീസ് നടത്താൻ ആലോചിക്കുന്നതായി മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മിഷണർ അറിയിച്ചു ഇതിൽ ഗർഭിണികൾ മുതിർന്ന പൌരന്മാർ ദ്വീപിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർ തുടങ്ങിയവർക്കാണ് പ്രഥമ പരിഗണന ഇന്ന് കൊച്ചിയിലെത്തുന്ന ഐ

മരണ നിരക്ക് ആഗോള തലത്തിൽ കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു

പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിൽ് ഓരോരുത്ത്രർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നാല് പേർ പ്രിദ്ധേശത്ത് നിന്നു വന്നതാണ് ഒരാൾ ചെന്നൈയിൽ നിന്ന് വെയ്താണ് സംസ്ഥാനത്ത് ഇന്ന് ആരും രോഗമുക്തി നേടിയിട്ടീല്ലെന്നും കൊറോണ അവലോകന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനത്തിന്റെ തോത് സങ്കൽപ്പിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മലയാളികൾ കേരളത്തിലെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇവരെ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്

മറ്റു യാത്രക്കാരെ പതിവ് പരിശോധനകൾക്കു ശേഷം വീടുകളിലും ജില്ലയിലെ കൊറോണ കെയർ സെന്ററുകളിലേക്കും മാറ്റും